വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതി മെഹുൽ ചോക്സിയെ വിട്ടുകിട്ടാൻ ആന്റിഗ്വാ ഗവൺമെന്റിന് ഇന്ത്യ കത്ത് നൽകി

സിന്ധു ഇന്ന് സ്പാനിഷ് താരം കരോളിന മാരിനെ നേരിടും

ലഡാക്കിലേക്ക് വിനോദയാത്ര പോയ കുടുംബത്തില്ല് ഒരു വിദ്യാർത്ഥിയുടെ പ്രതികരണവും പ്രധാനമന്ത്രി പൂങ്കുപിച്ചു് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് അവിടങ്ങളിലെ ജനങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ശ്രീ നരോദ്ർമ്യോദി കുട്ടികളോട് ആവശ്യപ്പെട്ടു

തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ എന്നീ ജില്ലകളിലെ വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കും

വോയിസ് വൈകിട്ട് പ്രത്യേക വിമാനത്തിലെത്തുന്ന രാഷ്ട്രപതി രാജ്ഭവനിലേക്ക് പോകും നാളെ രാവിലെ തിരുവനന്തപുരത്ത് നിയമസഭയുടെ വജ്രജൂബിലി ആഘോഷ സമാപനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഫെസ്റ്റിവൽ ഓൺ ഡമോക്രസി ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രപതി വൈകിട്ട് കൊച്ചിയിലേക്ക് തിരിക്കും മറ്റെന്നാൾ രാവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായും ജഡ്ജിമാരുമായും കൂടിക്കാഴ്ച നടക്കും

രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

ബിരുദ ബിരുദാനന്തര പി എച്ച്

തെലങ്കാന തമിഴ്നാട് കേരള സംസ്ഥാനങ്ങളുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ വൈകുന്നേരമാണ് ശ്രീ രാംനാഥ് കോവിന്ദ് ഹൈദരാബാദിലെത്തിയത്

ആന്റിഗ്വയിലേക്കു കടന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ചോക്സിയെ തടഞ്ഞുവയ്ക്കാൻ ആന്റിഗ്വ ബാർബുഡ അധികൃതരോട് ഇന്ത്യ അഭ്യർത്ഥിച്ചിരുന്നു

ഇതൊരു ചരിത്ര നിമിഷമാണെന്നും സപ്റ്റ്ം ്യാഥാർത്ഥ്യമാവുക യാണെന്നും ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേകർ പറഞ്ഞു

സർവകലാശാലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണിത്

സമിതിയിലേയും ദേശീയ ദുരന്തനിവാരണ ദുരിതാശ്ചാസ നിധിയിലേയും ഹൈവേ റോഡ് ഗതാഗതമന്ത്രാലയത്തിലേയും ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് സ്ഥിതി ഗതികൾ അവലോകനം ചെയ്യുന്നത് രണ്ട് ഹെലികോപ്റ്ററുകൾ അവശ്യ സാധന വിതരണത്തിനായി വിന്യസിച്ചിട്ടുണ്ട്

കെ ഗവൺമെന്റ് മാറ്റം വരുത്തും രാജ്യത്തെ ഇന്ത്യൻ വംശജരുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം

ദേശീയ ഹെൽത്ത് സർവ്വീസസ് പുറപ്പെടുവിച്ച റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റ് തീരുമാനം പ്രഖ്യാപിച്ചത്

അണക്കെട്ടിന്റെ ഷട്ടർ ഓപ്പറേറ്റിംഗ് മാനുവൽ ഉടൻ സമർപ്പിക്കണമെന്ന് തമിഴ്നാടിന് സമിതി നിർദ്ദേശം നല്കി കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സമിതി നിർദ്ദേശം നൽകിയത്

കഴിഞ്ഞ നവംബറിലാണ് സമിതി അവസാനമായി അണക്കെട്ട് സന്ദർശിച്ചത്

ജെ

എന്നായിരുന്നു ഈ റെയിൽവേസ്റ്റേഷൻ നേരത്തെ അറിയപ്പെട്ടിരുന്നത് പുനർ നാമകരണ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര റെയിൽവേമന്ത്രി പീയുഷ് ഗോയൽ ഉത്തർ പ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുക്കും ഒരു പാസഞ്ചർ ട്രെയിന്റെയും വനിതാ ജീവനക്കാർ നേതൃത്വം നൽകുന്ന ഒരു ഗുഡ്സ് ട്രെയിനിന്റെയും സ്മാർട്ട് യാർഡ് പദ്ധതിയുടെയും ഫ്ളാഗ് ഓഫ് കർമ്മവും നടക്കും

നാഷണൽ ആർമിയുടെ എട്ടാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കവെയാണ് മഡുറോക്കിനുനേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്

ആക്രമണത്തിൽ ഏഴ് സൈനികർക്ക് പരിക്കേറ്റു

സിന്ധു ഫൈനലിൽ ഇന്ന് സ്പാനിഷ് താരം കരോളിയു് മാരിനെ നേരിടും സെമിയിൽ ഇന്നലെ ജാപ്പനീസ് താരം അക്കാ്നെ യമാഗുച്ചിയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു ഫൈനലിൽ ഇടം നേടിയത് നിലവിലെ റണ്ണറപ്പാണ് സിന്ധു

സമാധാന പാലനത്തിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സായുധ സേനാംഗങ്ങളുടെ അവസരമാണ് ഇന്ത്യവിട്ടു നൽകിയിട്ടുള്ളത് ഇത് ഗ്ലാഘനീയമാണെന്ന് സമാധാന ദൌതൃത്തിന്റെ യു

സമകാലിക സ്ഥിതിയിലെ പുതിയ വെല്ലുവിളികൾ നേരിടാൻ സമാധാന സേന നിർണ്ണായക സേവനമാണ് അനുഷ്ഠിക്കുന്നത്

എൻ

ഒഴുക്ക് നിലച്ചതിനാൽ ഡൊയോംഗ് റിസർവോയറിന്റെ എല്ലാ ഷട്ടറുകളും അടച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു

ആധുനിക കാലത്തെ വെല്ലുവിളികൾ ഗ്ഗേരിടുന്നതിനോടൊപ്പം നൂതന സംരംഭങ്ങളുമായി മുന്നോട്ടു വർണ്ണമെന്ന് കേന്ദ്രമന്ത്രി സ്റ്റാർട്ടപ്പ് കമ്പനികളോട് നിർദ്ദേശിച്ചു

പുതിയ ആശയങ്ങൾക്കും സംരംഭങ്ങൾക്കും വിപ്ണി ലഭ്യമാക്കാൻ ഗവൺമെന്റ് എല്ലാ സഹായവും നൽകുമെന്ന് പ്രതിരോധ മന്ത്രി അറിയിച്ചു

ഖൈബർ പക്തൂൺഖ പ്രവിശ്യയിൽ ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം കറാച്ചിയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു

ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ യു എൻ റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്

വിദേശ ഇടനിലക്കാർ മുഖേന ചെറുകിട ആയുധങ്ങളുടെ വിൽപ്പന നടത്തുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്

എൻ വിദേശകാര്യ വിദഗ്ധ സംഘമാണ് ഇക്കാര്യം അറിയിച്ചത്